സുശക്തവുമാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് ഇന്ത്യ

വായ്പ സംബന്ധിച്ച് ലോകബാങ്ക് എ ഡി ബി പ്രതിനിധികളുമായി ചീഫ് സെക്രട്ടറി ചർച്ച നടത്തി

നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതികൾ വിലയിരുത്താൻ കേന്ദ്ര ധനമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കേരളത്തിൽ

പ്രതീക്ഷയുമായി ദ്യുതി ചന്ദ് ഇന്നിറങ്ങും ഇന്ന് ദേശീയ കായിക ദിനം

വാരണാസിയിലെ ബിജെപി പ്രവർത്തകരെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നൂ അദ്ദേഹം രാജ്യത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പ്രാപൃമായ തരത്തിലുള്ള ആരോഗൃ പരിക്ഷ ഉറപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് രാജ്യത്തെ പൌരന്മാരെന്ന നിലയ്ക്ക് എല്പാവരുടെയും പേരുകൾ വോട്ടർപ്പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഇക്കാരൃത്തിൽ ബോധവത്ക്കരണം നടത്താനും സമൂഹത്തിന് ബാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമപദ്ധതികളുടെ ഗുണഫലം എല്ലാവർക്കും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് ഉറപ്പുവരുത്തണമെന്ന് ശ്രീ

ലോകബാങ്ക് കൺട്രി ഡയറക്ടറുടെ ചുമതലയുള്ള ഹിഷാം അബുഎ

ബി ഇന്ത്യ റെസിഡന്റ് മിഷൻ ഡയറക്ടർ കെഞ്ചി യോക്കായാമാ എന്നിവരുമായാണ് ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തിയത്

ഇതിൽ ഗണ്യമായൊരു പങ്ക് ലോകബാങ്ക് അടക്കമുളള രാജ്യാന്തര ധനകാര്യ ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശയിൽ ദീർഘകാല വായ്പയായി കണ്ടെത്തുകയാണ് ലക്ഷ്യം

കേന്ദ്ര അഡീഷണൽ സെക്രട്ടറി ദേബാശിശ് പാണ്ഡെ ധനമന്ത്രാലയത്തിലെ ഉപദേഷ്ടാവ് എൻ ശ്രീനിവാസ റാവു പൊതു മേഖല ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും തലവൻമാർ നബാർഡ് പ്രതിനിധികൾ തുടങ്ങിയവരാണ് സംഘത്തിലുളളത് സംസ്ഥാന ഗവൺമെന്റുമായും ബന്ധപ്പെട്ട ഏജൻ സികളുമായും സംഘം ചർച്ച നടത്തും വിവിധ മേഖ്ല്കളിൽ പ്രളയക്കെടുതിമൂലം നിർത്തിവച്ചു ബാങ്കുകളും എ ടി എമ്മു കളും തുറന്ന് പ്രവർത്തിക്കുന്നുതിനുള്ള മാർഗ്ഗങ്ങളും സംഘം ആരായും

കൊച്ചിയിലെ പ്രളയ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചശേഷം ശ്രീ

ഇന്നലെ ചെങ്ങന്നൂർ ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ സന്ദർശിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ആലപ്പുഴയിൽ നൽകിയ സ്വീകരണത്തിലും ശ്രീ

സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തി വരികയാണ് കുട്ടനാട്ടിൽ ഇന്നലെ ആരംഭിച്ച മഹാശുചീകരണ യജ്ഞം തുടരുകയാണ്

അതേസമയം കുട്ടനാട്ടിൽ ആരംഭിച്ച മഹാശൂചീകരണ യജ്ഞം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വോളന്റിയർമാരും മന്ത്രിമാരായ പി തിലോത്തമൻ ജി

വലിയ തോതിലുളള നാശനഷ്ടം ഉണ്ടായ ജില്ലകളിൽ കൂടുതൽ തുക നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു

അധ്യയനത്തിന് പകരം പ്രളയഭീതി മൂലമുളള മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യം നൽകുന്നത് ശുചീകരണം പൂർത്തിയായതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളവും പ്രവർത്തന സജ്ജമായി

പ്രളയക്കെടുതികൾ ചർച്ച ചെയ്യാൻ നിയമസഭ നാളെ പ്രത്യേക സമ്മേളനം ചേരും പ്രളയക്കെടുതി നേരിടാൻ കൈക്കൊണ്ട നടപടികളും പുനരധിവാസ പ്രവർത്തനങ്ങളും സഭ ചർച്ച ചെയ്യും

ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബിജെപി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ജനക്ഷേമൃപിദ്ധതികളും നടപടികളും വിശദീകരിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗ്ങ്ങൾക്കും പ്രത്യേകിച്ച് ദളിതർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ദരിദ്രർ കർഷകർ എന്നിവർക്കും ഗുണം ചെയ്യുന്നവയാണ് വിവിധ ക്ഷേമ പദ്ധതികളെന്ന് യോഗം വിലയിരുത്തി

ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ മുനിവാഡ് മേഖലയിൽ ഇന്ന് പുലർച്ചെ മൂന്നു മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിലാണ് സുരക്ഷ സേന ഭീകരരെ വധിച്ചത്

ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസൃവിവരത്തെ തുടർന്ന് സേന നടത്തിയ തെരച്ചിലിനിടെ ഭീകരർ വെടി ഉതിർക്കുകയായിരുന്നു

പ്രശസ്ത ഹോക്കി താരം ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ കായികദിനമായി ആചരിക്കുന്നത്

അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലമായാണ് കണക്കാക്കുന്നത് ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ആത്മകഥയായ ദി ഗോൾ ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരണം കൂടിയാണ് നൽകുന്നത്

കായിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് മേജർ ധ്യാൻചന്ദ് അവാർഡും ഇന്ത്യ നൽകി വരുന്നുണ്ട്

ദേശീയ കായിക ദിനത്തിൽ എല്ലാ കായിക പ്രേമികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു ആരോഗൃകരമായ ഇന്തൃയ്ക്ക് വേണ്ടി കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർഥിച്ചു ഏഷ്യൻഗെയിംസ് കോമൺവെൽത്ത് തുടങ്ങി വിവിധ കായിക പരമ്പരകളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് തിളങ്ങാൻ സാധിച്ച വർഷമാണിതെന്നും ശ്രീ

രാമറാവുവിന്റെ മകനും ചലച്ചിത്രതാരവുമായ നന്ദമുരി ഹരികൃഷ്ണ വാഹനാപകടത്തിൽ മരിച്ചു

ഹൈദരാബാദിൽനിന്നു നൂറ് കിലോമീറ്റർ അകലെ നൽഗോണ്ടയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം

ഇന്ത്യയ്ക്കെതിരായി യുദ്ധം ചെയ്യാൻ യൂവാക്കൾക്ക് പരിശീലനം നൽകുന്ന ഒരാളുമായി ഗൂഢാലോചന നടത്തി എന്നതാണ് ജമ്മുവിലെ അംഫല്ല ജയിലിലെ ഡപ്യൂട്ടി സൂപ്രണ്ട് ഫിറോസ് അഹമ്മദ് ലോണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റും